തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പെരുമാറ്റച്ചട്ട രേഖ പുറത്തിറക്കുമെന്ന് രാജ്യത്തെ സാമൂഹൃ മാധൃമ ഇന്റർനെറ്റ് മൊബൈൽ കൂട്ടായ്മ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു

ഡി

എഫ് തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ അന്തിമചിത്രം തെളിഞ്ഞു

ജെ പി സ്ഥാനാർത്ഥി പട്ടിക ഉടൻ

സൌത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ വനിതാ ചാമ്പ്യൻഷിപ്പ് സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും

ചന്ദ്രഘാഷ് ലോക്പാൽ സമിതിയെ നിയോഗിച്ചുകൊണ്ട് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്നലെ രാത്രിയാണ് ഉത്തരവിറക്കിയത്

മുൻ ചീഫ് ജസ്റ്റിസുമാരായ ദിലിപ് ബ്ബു ബ്ബോസ്സെ പ്രദിപ് കുമാർ മൊഹന്തി അഭിലാഷ കുമാരി നില്ലിൽ ഛത്തീസ്ഗഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ അജയ് കുമാർ ത്രിപാഠി എന്നിവരാണ് ലോക്പാൽ സമിതിയിലെ മറ്റ് ജുഡീഷ്യൽ അംഗങ്ങൾ

സശസ്ത്ര സീമാബെല്ലിന്റെ ആദ്യ വനിതാ മേധാവിയായിരുന്ന അർച്ചന രാമസുന്ദരം മഹാരാഷ്ട്ര മുൻ ചീഫ് സെക്രട്ടറി ദിനേശ്കുമാർ ജെയ്ൻ മുൻ ഐ

എസ് ഓഫീസർ മഹേന്ദർ സിങ്ങ് മുൻ ഐ

എസ് ഓഫീസർ ഇന്ദ്രചിത് പ്രസാദ് ഗൌതം എന്നിവരാണ് സമിതിയിലെ ജുഡീഷ്യൽ ഇതര അംഗങ്ങൾ ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഗവർണ്ണർ മൃദുല സിൻഹ ഇന്ന് പ്രത്യേക നിമസഭാ സമ്മേളനം വിളിച്ചിട്ടുണ്ട്

മനോഹർ പരീക്കറിന്റ വിയോഗത്തെ തുടർന്ന് ഇന്നലെയാണ് ശ്രീ പ്രമോദ് സാവന്ത് ഗോവ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത്

ജെ

എ മാരാണ് ഉള്ളത്

സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുമെന്ന് ബി ജെ

ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ ഇവരുടെ പ്രതിനിധികളുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിനു സമാനമായ പ്രവർത്തന രൂപരേഖ കൊണ്ടുവരണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പു കമ്മീഷണർ സുനിൽ അറോറ സംഘടനാ പ്രതിനിധികളോട് നിർദ്ദേശിച്ചു രാഷ്ട്രീയ പാർട്ടികളുടെ പരസ്യങ്ങളുടെ ചെലവ് സംബന്ധിച്ച് സുതാര്യത ഉറപ്പാക്കാനുള്ള നടപടികളും ചർച്ച ചെയ്തു ഫെയ്സ് ബുക്ക് വാട്ട്സ് ആപ്പ് ട്വിറ്റർ ഗൂഗിൾ ഉൾപ്പെടെ വിവിധ സമൂഹ മാധ്യമ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു

മെം ഭീ ചൌക്കീദാർ പരിപാടിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരിപാടികളുടെ ഭാഗമായാണിതെന്ന് ബി ജെ പി മാധ്യമ സമിതി അറിയിച്ചു

ഇന്നലെ രാത്രി ദേശീയ ടെലിവിഷനിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ രാജി തനിക്ക് പ്രയാസമേറിയ കാര്യമാണെങ്കിലും പുതിയ തലമുറയെ വാർത്തെടുക്കാൻ നടപടി അത്യാവശ്യമായിരിക്കുകയാണെന്ന് പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു

പ്രസിഡന്റിന്റെ വിശ്വസ്തനും മുൻ പ്രധാനമന്ത്രിയുമായ ജൊമാർട്ട് തോക്കായേവാണ് ഇപ്പോൾ ഈ സ്ഥാനം വഹിക്കുന്നത്

കൂടുതൽ വിവരങ്ങളു്മായി ഗോപകുമാർ

ജെ പി യുടെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതിയോഗം ഇന്നലെ രാത്രി ഡൽഹിയിൽ ചേർന്നു

നിലവിൽ ഒരു സംസ്ഥാനത്തെയും സ്ഥാനാർത്ഥി പട്ടിക ബി ജെ

മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനും ബി ജെ പി യ്ക്കും എതിരെ സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ്വാദി പാർട്ടിയും സഖ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം തിരഞ്ഞെടുപ്പ് ചെലവുകൾ നിരീക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിലേയ്ക്കും തമിഴ്നാട്ടിലേയ്ക്കും പ്രത്യേക നിരീക്ഷകരെ നിയമിച്ചതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു

ഡി എഫ് യു ഡി

വടകരയിൽ കെ മുരളീധരൻ വയനാട് ടി സിദ്ദിഖ് എന്നിവരുടെ സ്ഥാനാർത്ഥിത്വമാണ് നീണ്ട ചർച്ചകൾക്കൊടുവിൽ കോൺഗ്രസ് അവസാനമായി പുറത്തുവിട്ടത് ഇതോടെ യു ഡി എഫിന്റെ മൂന്ന് എം എൽ എ മാർ മത്സരരംഗത്ത് എത്തി

ഡി എഫിൽ നിന്നും ആറ് എം എൽ

ബൂത്തുതല കൺവെൻഷനുകൾ പൂർത്തിയാക്കി എൽ ഡി

മണ്ഡലങ്ങളിൽ ആദ്യഘട്ട പര്യടനത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ

ജെ പി സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പുറത്തിറങ്ങും ഇന്നലെ രാത്രി ഡൽഹിയിൽ ചേർന്ന കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതിയോഗം കേരളത്തിലെ സ്ഥാനാർത്ഥികളുടെ കാര്യവും ചർച്ച ചെയ്തുവെന്നാണ് റ്റിപ്പോർട്ട്

ഡി എ യ്ക്കൊപ്പമുള്ള ബി ഡി ജെ എസിന്റെ സ്സ്റ്റ്ന്റാർത്ഥി പ്രഖ്യാപനവും ഉടൻ ഉണ്ടാകും

തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സഹകരണ ബാങ്കുകൾ സംഘങ്ങൾ എന്നിവ മുഖേനയുള്ള വലിയ തുകയുടെ ഇടപാടുകൾ നിരീക്ഷിക്കാനും അദ്ദേഹം നിർദ്ദേശം നൽകി

രേഖയില്ലാതെ സൂക്ഷിക്കുന്ന പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പണവും മറ്റു വസ്തുക്കളും ആദായനികുതി വകുപ്പ് പിടിച്ചെടുക്കും

ഈ മാസം എട്ടിന് വില നിയന്ത്രിച്ച് കൊണ്ടുള്ള ഉത്തരവ് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്

ഇതിനായി ആസാം അരുണാചൽ പ്രദേശ് മണിപ്പൂർ മേഘാലയ മിസോറാം നാഗാലാന്റ് ത്രിപുര എന്നിവിടങ്ങളിൽ നിരീക്ഷണം ഏർപ്പെടുത്തി

നഗറിൽ കോട്ടയം വെക്ടർപ്പ്കൺട്രോൾ റിസർച്ച് സെന്ററിൽനിന്നുള്ള സംഘം ഇന്ന് പ്പിരിശോധന നടത്തും

തുടർന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോ